ജനതകർഫ്യൂവിൽ പൂർണമായും സഹക്ടരിച്ച് കേരളം

തുടരണമെന്നും ട്രെയിൻ ബസ് യാത്രക്ൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി

നിർമിക്കാൻ മരുന്നു കമ്പനികളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

അടച്ചിടാൻ മുഖ്യമന്ത്രി അശോക് ഗോലോട്ട് ഉത്തരവിട്ടു

രാവിലെ ഏഴു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയണം പൊതുഗതാഗതം ഉൾപ്പടെ എല്ലാം നിശ്ചലമാകുകയാണ് കടകളും കമ്പോളങ്ങളും തുറക്കരുത്

കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സ്ട്സ്ഥാന്ന് മുഖ്യമന്ത്രിമാർ ജനതാ കർഫ്യൂ നിർദേശം സ്വാഗതം ചെയ്തു ട്രെയിൻ ഗതാഗഗതം പൂർണമായും സ്തംഭിക്കും

വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കില്ലെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അറിയിച്ചു അത്യാവശ്യഘട്ടത്തിനായി ഡൽഹിയിൽ പകുതി ബസുകൾ നിരത്തിലിറക്കും ഓട്ടോയും ടാക്സിയും സർവീസ് നടത്താതെ ജനതാ കർഫ്യൂവിൽ അണിചേരും

സമൂഹമാധൃമങ്ങളിലൂടെയും മറ്റുമാണ് കോവിഡ് പ്രതിരോധി ക്കുന്നതിനുള്ള സന്ദേശങ്ങൾ കൈമാറുന്നത്

റോഡ് റെയിൽ വ്യോമ ഗതാഗതം നിലയ്ക്കും

എസ് ആർ ടി സി യും മെട്രോ ട്രറെയിലും ഉൾപ്പെടെ നിർത്തിവയ്ക്കും സ്വകാര്യബ്സ്റ്റുകളും ഓട്ടോടാക്സി സർവീസുകളുമുണ്ടാകില്ല എന്നുമുൽ പ്പെട്രോൾ പമ്പുകൾ തുറക്കും

കടകമ്പോളങ്ങൾ അടക്കും ജനതാ കർഫ്യൂവിൽ പ്രിക്കു് ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കാനും മുഖൃമൂന്തി പിണറായി വിജയൻ നിർദേശിച്ചു

എല്ലാവർക്കും വേണ്ടിയാണ് ക്രമീകരണങ്ങൾ

ആരാധനാലയങ്ങളിൽ ആയിരക്കണക്കിന് ചില ആളുകൾ എത്തിച്ചേർന്നുവെന്നും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് വീണ്ടും അഭ്യർഥിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിരുത്തരവാദത്തിന്റെ വലിയ ദൃഷ്ടാന്തം കാസർകോട് അനുഭവിച്ചതാണ് രോഗബാധിതൻ നാടാകെ സഞ്ചരിച്ചു സർക്കാർ സംവിധാനങ്ങളെ കബളിപ്പിച്ച് സമൂഹത്തിന് വിപത്ത് പകരുന്നവരെ ന്യായീകരിക്കുകയോ അവരുടെ വാദങ്ങളെ അവതരിപ്പിക്കാൻ അവസരം നൽകുകയോ മാധ്യമങ്ങൾ ചെയ്യരുത്

രോഗ നിർണയ സംവിധാനം വിപുലമാക്കും

സംസ്ഥാനത്തേക്കുള്ള ചരക്കുവണ്ടികൾ തടയില്ലെന്ന് തമിഴ്നാട് അറിയിച്ചു

വിദേശത്തുനിന്ന് ആളുകൾ എയർപോർട്ടിലെത്തിയാൽ ഡിക്ലറേഷനിൽ ഒപ്പിടണം

കൂടിയേറ്റക്കാർ എവിടെയാണോ അവിടെതന്നെ കഴിയണമെന്നും കൊറോണ ഭീതിയിൽ പ്രീടുകളിൽ എത്താനായി ട്രെയിൻ ബസ് യാത്രകൾ ഒഴിവ്വാക്ക്ണ്മെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

കൊറോണ്ട് വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വലിയ്ക്ക്ക്ക്നഗരങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാർ വീടുകളിലേക്ക് പുറപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് തിരക്കേറിയ സ്ഥലത്ത് യാത്ര ചെയ്യുന്നത് കൊറോണ വ്യാപിപ്പിക്കുന്നതിനുള്ള സാധൃത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്പനികളുടെ പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിങ്ങ് വഴി ചർച്ച നടത്തി പ്രത്യേക സാഹചര്യത്തിൽ പരമാവധി ഉൽപാദനം വർധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദേശിച്ചു ആവശ്യമായ ഉൽപ്പന്നങ്ങളും അനുബന്ധ ആരോഗ്യ സാമഗ്രികളും കുറവില്ലാതെ എത്തിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി

മാളുകൾ കടകൾ ഫാക്ടറികൾ പൊതുഗതാഗത സംവിധാനം എന്നിവയുൾപ്പട്ടെ അടച്ചിടാനാണ് സർക്കാർ നിർദേശം

ദേശീയ ഭക്ഷ്യസുരക്ഷാ ്പെദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മെയ് മാസം വരെ സൌജന്യമായി ഗോതമ്പ് ലഭിക്കും ഫാക്ടറികളിൽ ജീവനക്കാരെ പിരിച്ചു വിടരുതെന്നും ശമ്പളം നൽകണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു

ആരോഗ്യ ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാളാണ് ഇക്കാര്യം അറിയിച്ചത്

ജനങ്ങൾ അനാവശ്യമായി കോവിഡ് പരിശോധന നടത്തേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

അടിയന്തര സാഹചര്യം വിശദീകരിച്ച് ആയിരം കേന്ദ്രങ്ങളിൽ വീഡിയോ കോൺഫറൻസിങ്ങ് വഴി പരിശീലനം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു

എട്ടു രോഗികൾ മുംബ്ലൈയിലാണ് രണ്ടു പേർ പുനെയിലും ഒരാൾ വീതം കല്യാണ്ണിൽ നിന്നും യവത്മാലിൽ നിന്നുമാണ് ആറുപേർ വിദേശ്രത്തു ് പോയിരുന്നതായും ഒരാൾ മുംബൈ വിമാനത്താവളത്തിൽ ് ജോലിക്കാരനാണെന്നും മന്ത്രി അറിയിച്ചു

കോവിഡ് പടരുന്ന സാഹചരൃത്തിലാണ് നിയന്ത്രണമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു സംസ്ഥാനത്തേക്ക് പുറത്തു നിന്നും എത്തുന്നവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം ആരോഗ്യപരിശോധന നടത്തണം രജിസ് ട്രേഷൻ രേഖകളും അനുമതി നൽകുന്ന എസ്

എസ് സന്ദേശവും ഹാജരാക്കിയാൽ മാത്രമേ മേഘാലയയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ

സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി മുഖ്യമന്ത്രി വിജയ്രൂപാണിയുടേയും ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേലിന്റേയും നേതൃത്വത്തിൽ ഇന്നലെ അവലോകനയോഗം ചേർന്നു

കൊറോണ വ്യാപന പ്രതിരോധത്തിന്റെ ഭാഗമായാണ് നടപടി